കോവിഡിനെതിരെ രാജ്യം ഒറ്റക്കെട്ടായി പോരാടുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞായറാഴ്ച രാത്രി ഒൻപത് മണിക്ക് ദീപം തെളിയിച്ച് കൊറോണ എന്ന ഇരുട്ട് അകറ്റാൻ പ്രിധാനമന്ത്രിയുടെ ആഹ്യാനം

ഇന്ന് പുറത്തിറക്കിയ വീഡിയോ സന്ദേശത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം പറഞ്ഞത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരുമിച്ച് മുന്നേറേണ്ടതിന്റെ ആവശ്യകത രാജ്യം തിരിച്ചറിഞ്ഞു ഏപ്രിൽ അഞ്ച് ഞായറാഴ്ച രാത്രി ഒൻപത് മണിക്ക് ഒൻപത് മിനിറ്റ് എല്ലാവരും മാറ്റിവയ്ക്കണം എന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു ഈ സമയത്ത് എല്ലാവരും ദീപം തെളിയിച്ച് കൊറോണയുടെ ഇരുട്ട് മാറ്റണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു

കൊറോണയുടെ അന്ധക്ട്രർത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കാൻ നമുക്ക് ഒരുമിച്ച് ഈ സമയം നീക്കിവെക്കാമെന്നാണ് പ്രധാനമന്ത്രി ആഹ്വാന്റ് ചെയ്തത്

ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിട്ട് ഒൻപത് ദിവസം കഴിയുമ്പോൾ മികച്ച പ്രതികരണമാണ് ജനങ്ങളിൽ നിന്നും ലഭിക്കുന്നത്

ഭരണസംവിധാനങ്ങൾ കാര്യക്ഷമമായി പ്രവർത്തിച്ചെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ജനതാ കർഫ്യൂ ലോകത്തിന് തന്നെ മാതൃകയായി ഇന്ത്യയുടെ ഈ നടപടി പല രാജ്യങ്ങളും മാതൃകയാക്കിയെന്നും ശ്രീ മോദി വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു

രണ്ടു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തിലധികം പേർക്ക് രോഗബാധ റിപ്പോർട്ട് ചെയ്തു